രാജ്യത്ത് കോവ്വിപ്പ് ബാധിതരുടെ എണ്ണം ഒരു കോടി കടന്നു ന് രോഗമുക്തി നിരക്കിൽ രാജ്യം മുന്നിലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി

എൽ ഫുട്ബോളിൽ എഫ്

ചെന്നൈയിൻ എഫ് സി ക്ക് വിജയം ഇന്ന് ഹൈദരാബാദ് മുംബൈയെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെയും നേരിടും

വിവിധ ഉഭയകക്ഷി ആഗോള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യും

ജമ്മുകശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ

ബിർഭൂമിൽ ഉച്ചതിരിഞ്ഞാണ് പരിപാടി ശാന്തിനികേതനിലെ വിശ്വഭാരതി സർവകലാശാല സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ ഗുരുദേവ് രബീന്ദ്രനാഥ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും

ഇന്നലെ പശ്ചിമബംഗാൾ സന്ദർശനം ആരംഭിച്ച ആഭ്യന്തരമന്ത്രി മിഡ്നാപുരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തിരുന്നു

ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്വന്തം ജില്ലകളിൽ നിയമനം നൽകാൻ പാടില്ലെന്നും കമ്മീഷൻ നിഷ്കർഷിച്ചു തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമനടപടികൾ നേരിടുന്നവരോ വീഴ്ചകൾ വരുത്തിയിട്ടുള്ളതോ ആയ ഉദ്യോസ്ഥർക്കും നിയമനം നൽകാൻ പാടില്ല ആറ് മാസത്തിനുള്ളിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് പ്രവൃത്തികൾക്കായി നിയമിക്കരുത്

ഇതോടെ ഏറ്റവും ക്ടൂടുതൽ രോഗബാധിതരുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യമാറി

പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലുള്ള കുറവ് തുടരുന്നു നിലവിൽ മൂന്ന് ലക്ഷത്തിലധികം പേരാണ് ചികിത്സയിലുള്ളത്

ഒക്ടോബർ നവംബർ മാസങ്ങൾ ഉത്സലകാലങ്ങളായിരുന്നിട്ടും കൃത്യമായ പരിശോധനയും ചികിത്സാ നയവും കൊണ്ട് കൂടുതൽ പുതിയ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്ത് വാക്സിന്റെ ആദ്യഘട്ടം പരീക്ഷിക്കുന്ന വേളയിലും ഏവരും കോവിഡ് ്മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ആവർത്തിച്ചു

നേരത്തെ പ്രികോവിഡ് ബാധിച്ചവരും അല്ലാത്തവരും വാക്സിന്റെ് മുഴുവൻ ഷെഡ്യുളും എടുക്കണമെന്നും കേന്ദ്രി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

പ്രതിരോധ മരുന്ന് എത്തും വരെ ജാഗ്രത തുടരണമെന്നും മന്ത്രി വൃക്തമാക്കി

രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തിലേറെ പേർ ലോകത്ത് നിലവിൽ ചികിത്സയിലുണ്ട്

മലയാളത്തിൽ നിന്നും സേഫ് ട്രാൻസ് കെട്ട്യോളാണ് എന്റെ മാലാഖ താഹിറ എന്നിവ ഫീച്ചർ വിഭാഗത്തിൽ ഇടം നേടി കപ്പേള മുഖ്യധാര വിഭാഗത്തിലും ഒരു പാതിര സ്വപ്നം പോലെ നോൺ ഫീച്ചർ വിഭാഗത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്

എൽ ഫുട്ട്ണ്ട്ളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്

ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഉള്ളത്

ഒരു ്ക്ലബിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന് റെക്കോർഡാണ് മെസി പെലെയുമായി പങ്കുവച്ചത്